സമുചിതമായി ആഘോഷിക്കുന്നു ന്യൂഡൽഹി രാജ്പഥിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ രാഷ്ടപതി രാംനാഥ് ക്ഷേറ്പ്പിന്ദ് സേനാവിഭാഗങ്ങളുടെ അഭിവാദ്യൂർ ്സ്വീകരിച്ചു

അഹമ്മദ് വാനിക്ക് ്മരണാനന്തര ബഹുമതിയായി പ്രഖ്യാപിച്ച അശോകചക്രം അദ്ദേഹത്തിന്റെ പത്നി രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങി

മുഖർജി എന്നിവർക്ക് ഭാരത രത്നം

പ്രധാനമന്ത്രിയുടെ വികസന പദ്ധതികൾ സംസ്ഥാനത്തിന് ഗുണം ചെയ്തതായി ഗവർണർ പി സദാശിവം

രാജ്പഥിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ദേശീയ പതാക ഉയർത്തിയതോടെയാണ് പരേഡിന് തുടക്കമായത്

വോയിസ് രാജ്പഥിലെ അമർ ജവാൻ ജ്യോതിയിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും സൈനിക മേധാവികൾക്കൊപ്പം പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായത് ജമ്മുകശ്മീരിൽ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ലാൻസ് നായിക് നസീർ അഹമ്മദ് വാണിയുടെ ഭാര്യ മഹാജബീൻ മരണാനന്ത ബഹുമതിയായി അശോക് ചക്ര പുരസ്കാരം ഏറ്റുവാങ്ങി പിന്നീട് പൂഷ്പവൃഷ്ടി നടത്തി ഹെലികോപ്റ്ററുകൾ കടന്നുപോയതോടെ പ്രൌഡഗംഭീര പരേഡിന് തുടക്കമായി വിജയ് ചൌക്കിൽ നിന്നു തുടങ്ങുന്ന റിപ്പബ്ലിക് ദിന പരേഡ് രാജ്പഥ് തിലക് മാർഗ് ബഹാദൂർ ഷാ സഫർ മാർഗ് നേതാജി സൂഭാഷ് മാർഗ് വഴി ചെങ്കോട്ടയിലേക്കു നീങ്ങുകയാണ്

സൈനിക ശക്തി വിളിച്ചോതുന്ന ആയുധങ്ങളുടെ പ്രദർശനം വിവിധ സേനാവിഭാഗങ്ങളുടെ മാർച്ച് കലാരൂപങ്ങൾ എന്നിവ പരേഡിന് ആവേശം പകരുന്നവയാണ്

ദിനാഘോഷങ്ങളുടെ ഭാഗമായി അഞ്ച് ദിവസത്തെ ഭാരത് പർവ്വ് പരിപാടിക്കും തുടക്കമായി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എഴുപതാമത് റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി ഇന്നലെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പുരുഷൻമാരെപോലെ സ്ത്രീകൾക്കും തുല്യസ്വാതന്ത്ര്യം അനുഭവിക്കാൻ അവകാശമുണ്ട് രാജ്യത്ത് ദരിദ്രരുടെ ശബ്ദത്തിനാണ് കൂടുതൽ ശക്തി

തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ദേശീയ പതാക ഉയർത്തിയ ശേഷം വിവിധ സേനാവിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു പ്രധാനമന്ത്രിയുടെ വികസന പദ്ധതികൾ സംസ്ഥാനത്തിന് ഗുണം ചെയ്തതായി ശ്രീ പി സദാശിവം റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു

കേരളത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി മുഖ്യമന്ത്രി നടത്തുന്ന ഇടപെടലുകളെയും അദ്ദേഹം പ്രശംസിച്ചു കേരളത്തിന്റെ പുനർനിർമ്മാണത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും പുനർനിർമ്മാണത്തിൽ സുതാര്യത ഉറപ്പാക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തുകയും സേനാവിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കുകയും ചെയ്തു

റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നതിന് മുൻപ് നടന്ന പ്രടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ശ്രീമതി

നാനാജിക്കും ഹസാരികയ്ക്കും മരണാനന്തര ബഹുമതിയായാണ് ഭാരത രത്ന സമ്മാനിക്കുന്നത്

ലേലം നാളെ ആരംഭിക്കുമെന്നും സാംസ്കാരിക മന്ത്രി മഹേഷ് ശർമ്മ ആകാശവാണിയോട് പറഞ്ഞു്

ഈ മാസം രണ്ടാം തവണയാണ് ശ്രീ

കൊച്ചി നാവിക വിമാനത്താവളത്തിൽ ഉച്ചക്ക് എത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് ഹെലികോപ്റ്ററിൽ രാജഗിരി കോളേജ് മൈതാനത്തിറങ്ങും

എല്ലിന്റെ ഇന്റഗ്രേറ്റഡ് റിഫൈനറി എക്സ്പാൻഷൻ കോംപ്ലക്സിന്റെ സമർപ്പണത്തിനെത്തും പരിപാടിക്കുശേഷം അദ്ദേഹം ഹെലികോപ്റ്ററിൽ തൃശൂരിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി യുവമോർച്ചാ സമ്മേളനത്തിൽ പങ്കെടുക്കും

മധുരയിലെ പുതിയ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന് അദ്ദേഹം തറക്കല്ലിടും തഞ്ചാവൂർ തിരുനെൽവേലി മധുര ഗവൺമെന്റ് മെഡിക്കൽകോളേജുകളുടെ നവീകരണ പ്രവർത്തനങ്ങളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പൊതുസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും

ഐ

മറൈൻഡ്രൈവിൽ ബൂത്ത് പ്രസിഡന്റ്മാരുടേയുള്ളൂ മുഹിളാ വൈസ് പ്രസിഡന്റ്മാരുടേയും യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹമെത്തുന്നത്

പ്രദേശത്ത് തീവ്രവാദികളുടെ സാന്നിദ്ധ്യമുണ്ടെന്ന് ലഭിച്ച വിവരത്തെ തുടർന്ന് നടത്തിയ തെരച്ചിലിനിടെയാണ് വെടിവയ്പ് ഉണ്ടായത് കൊല്ലപ്പെട്ട തീവ്രവാദികളെ തിരിച്ചറിഞ്ഞിട്ടില്ല

റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നതിന് എതിരെ പ്രതിഷേധിക്കാനാണ് വിഘടനവാദികൾ ആഹ്വാനം ചെയ്തത്

ആം ആദ്മി പാർട്ടിയും റ്റി

എസും പ്രകാശ് രാജിന്റെ വരവ് സ്വാഗതം ചെയ്തു

ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില

ഇരുടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്

വനിതാ ഡബിൾസിൽ സമന്ത സ്റ്റോസുർ സാംങ് ഷുവൈ സംഖ്യം കിരീടം നേടിയിരുന്നു

രോഹിത് ശർമയും ശിഖർധവാനും അർദ്ധ സെഞ്ചറി നേടിയപ്പോൾ അമ്പാടി റായുഡുവും കോഹ്ലിയും എം എസ് ധോണിയും കേദർ ജാദവും അവരുടെ കടമകൾ ഭംഗിയായി നിർവഹിച്ചു ന്യൂസിലാന്റിന്റെ ഫെർഗൂസണും ബൌൾട്ടും രണ്ട് വീതം വിക്കറ്റെടുത്തു ടോസ് നേടി ബാറ്റിംഗ് തെരെഞ്ഞെടുത്ത ഇന്ത്യയ്ക്ക് ഓപ്പണർമാരായ ശിഖർധവാനും രോഹിത് ശർമയും ചേർന്ന് സ്വപ്നതുല്യമായ തുടക്കമാണ് നൽകിയത്